തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി വിഷയങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകളിലൂഒട്ടു പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി

എൻഫോഴ്സ്മെന്റ് ഡിയ്ക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശം

സഹകരണ ബാങ്ക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ന് മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരെ മുംബൈ പോലീസ് കേസെടുത്തു

രാഹുൽഗാന്ധി എം പി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി ഇന്ന് വയനാട്ടിലെത്തും

വിഷയം ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്ന് ശ്രീ

ഒരു സുഹൃത്തുമായുള്ള മികച്ച കൂടിക്കാഴ്ചയായിരുന്നു ഇതെന്ന് ട്രംപ്പ്റ്റ്ഞ്ഞു

ഫ്രാൻസ് യു എ

ഇത് സൌഹൃദരാഷ്ട്രങ്ങളുമായുള്ള ഇന്തൃയുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുകയും ചെയ്തു

ജൈവവൈവിദ്ധ്യം കാലാവസ്ഥാ വൃതിയാനം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യൽ ഡിജിറ്റൽ ശാക്തീകരണം എന്നീ മേഖലകളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇന്ത്യ കൈക്കൊണ്ട നൂതന നടപടികൾ ലോകത്തെ പ്രമുഖരാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെ കേട്ടു സാമൂഹിക അസമത്വങ്ങളെ ശാക്തീകരണത്തിലൂടെ നേരിടുന്നതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയതിനെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു ഉച്ചകോടിക്കിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്റസ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുമായി ശ്രീ

പ്രധാനമന്ത്രിയും യു

കശ്മീർ വിഷയത്തിൽ നയതന്ത്ര വിജയം കൈവരിക്കാനും ഊർജ്ജ വ്യവസായ മേഖലകളിൽ ഉൾപ്പെടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും കൂടിക്കാഴ്ച സഹായകമായി

വീട് വാങ്ങാനായ്ടി പ്പണം നൽകിയവരുടെ മൂവായിരം കോടി രൂപയോളം വെട്ടിച്ചെടുത്ത്തായി ആരോപണം നേരിടുന്ന കമ്പനി ഉദ്യോഗസ്ഥർക്കെതിരെ നടപ്പടി എടുക്കുന്നതിനായാണ് ഇത് അന്വേഷണ ആവശ്യത്തിനായി ഒരാഴ്ചീയ്ക്ക്കം ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ട് നൽകാനാണ് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര യു

ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് കോടതിക്ക് വേണ്ടി കമ്പനിരേഖകളിൽ നടത്തുന്ന വിശദമായ ഓഡിറ്റാണ് ഫോറൻസിക് ഓഡിറ്റ്

പൂഴ്ത്തി വയ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പസ്വാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഒരാഴ്ച മുമ്പാണ് പുതിയ മന്ത്രിമാരെ തെരഞ്ഞെടുത്തത് മൂന്ന് ഉപമുഖ്യമന്ത്രിമാരിൽ ശ്രീ ഗോവിന്ദ് കർജോളിന് പൊതുമരാമത്ത് സാമൂഹ്യക്ഷേമ വകുപ്പുകൾ നൽകി

അശ്വന്ത് നാരായൺ ഉന്നത വിദ്യാഭ്യാസം വിവരസാങ്കേതികം ബയോ ടെക്നോളജി എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കും

ധനകാര്യം ഊർജ്ജം സിവിൽ സപ്ലൈസ് ജലസേചനം എന്നിവ് ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും

സ്കൂളുകൾ കോളേജുകൾ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആശുപത്രികൾ തുടങ്ങിയ മേഖലകളിൽ എന്തൊക്കെ സൌകര്യങ്ങളാണ് സജ്ജമാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് സംഘം വിലയിരുത്തും

മരുന്നുകളുടെ വേണ്ടത്ര ലഭ്യത ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീർ താഴ്വരയിലെ ആശുപത്രികളിൽ മരുന്നു ലഭ്യതാ കണക്കെടുപ്പ് സംബന്ധിച്ച് ഇന്നലെ നടന്ന അവലോകന യോഗത്തിലാണ് ശ്രീ ബഷീർ അഹമ്മദ് ഇക്കാര്യം അറിയിച്ചത്

കർഷകത്തൊഴിലാളി പാർട്ടി നേതാവ് ജയന്ത് പ്രാട്ടീൽ സഹകരണ സംഘത്തിലെ ചില ജീവനക്കാർ എന്നിവർക്കുതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്

അഴിമതി നടന്നതിന് വൃക്തായ തെളിവുകൾ ഉണ്ടെന്നു കാട്ടി മുംബൈ ഹൈക്കോടതിയ്ടിലെ ജ്സ്റ്റിസുമാരായ എസ് സി ധർമ്മാധികാരി എസ് കെ ഷിങ്ങ്ട് എന്നിവരാണ് സാമ്പത്തിക കുറ്റകൃത്യ സംഘത്തോട് എഫ്ഐആർ രജീസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത്

ലാഭവിഹിതം മിച്ചശേഖരം എന്നീ ഇനത്തിൽ സംഭരിച്ച തുകയാണ് റിസർവ് ബാങ്ക് ഗവൺമെന്റിന് നൽകുന്നത് റിസർവ് ബാങ്ക് മുംബൈയിൽ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

നയതന്ത്ര ഇടപെടലിലൂടെയും ചർച്ചുകളിലൂടെയും ട്രംപും റുഹാനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ധാരണയായതായി ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു

രാഹുലിന്റെ സന്ദർശനത്തോടനുബ്ന്ധിച്ച് ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി

ഇന്നും നാളെയും വയനാട്ടിൽ തങ്ങുന്ന അദ്ദേക്ക് കൽപ്പറ്റ ബത്തേരി മാനന്തവാടി എന്നിവിടങ്ങളിലെ പ്രളയബാ്ധിത പ്രദേശങ്ങൾ സന്ദർശിക്കും

അതേസമയം വയനാട് പുത്തുമലയിൽ അവസാനഘട്ട തെരച്ചിൽ ഇന്നലെ തുടങ്ങി ഇവിടെ അഞ്ചുപേരെ ഇനിയും കണ്ടെത്താനുണ്ട്

മീൻപിടുത്തക്കാർ സൂക്ഷിക്കണം

സാമൂഹികമായും നിയമപരമായും ഏറെ പ്രാധാന്യമുള്ള കേസിൽ പത്ത് പ്രതികളെയാണ് കോടതി കൂറ്റ്ക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ ശിക്ഷത്തിൻ ്മേലുള്ള അന്തിമവാദം ശനിയാഴ്ച പൂർത്തിയാക്കിയിരുന്നു

ലോക അഞ്ചാം നമ്പർ റഷ്യൻ താരം ഡാനിൽ മെഡ്വഡേവിനിൽ നിന്നാണ് പ്രജ്നേഷ് പരാജയം ഏറ്റുവാങ്ങിയത്